രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ ഉയരുന്ന ഏതു വെല്ലുവിളിയ്ക്കും സൈനൃം ശക്തമായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഗൾഫ് പര്യടനം പൂർത്തിയാക്കി മൂഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി കേരളത്തിൽ കൂടുതൽ പദ്ധതികളിൽ മുതൽ മുടക്കുമെന്ന് തുറമുഖ മാനേജ്മെന്റ കമ്പനിയായ ഡി

വെസ്റ്ഇൻഡീസിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് എട്ട് വിക്കറ്റ് വിജയം

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

വാരാണസിയിൽ സംഘടിപ്പിച്ച കാർപ്പറ്റ് മേളയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി കാർപ്പെറ്റ് ഉൽപാദകർക്ക് മതിയായ രീതിയിൽ ഗോഡൌൺ ഷോ റൂം സൌകര്യങ്ങൾ ലഭ്യമാക്കാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കാർപ്പറ്റ് വൃവസായത്തെ പരിപോഷിപ്പിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കാർപറ്റ് ഉത്പാദകർ ഇന്തൃയാണെന്നും അദ്ദേഹം പറഞ്ഞു

സമഗ്രവളർച്ചയിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ സംബന്ധിക്കും നിവ്ദിയ കോർപ്പറേഷൻ പ്രസിഡന്റും സ്ഥാപകാംഗങ്ങളിൽ ഒരാളുമായ ജൻസൺ ഹുവാങ്ക് മുഖ്യ പ്രഭാഷണം നടത്തും

ഇന്ന് പുലർച്ചയോട്ടെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്

മലയാളി സംഘടനകളും സ്ഥാപനങ്ങളും വഴിയിട്ടുള്ള് സാമ്പത്തിക സഹയം കേരളത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു സ്ന്ദർശനം ഗൾഫ് രാജൃങ്ങളിലെ വൻകിട നിക്ഷേപകരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി പ്രമുഖ തുറമുഖ മാനേജ്മെന്റ് കമ്പനിയായ ഡി

വേൾഡിന്റെ ദ്ദ്ബായിലെ ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി ഇന്നലെ ചർച്ച നടത്തി കേരളത്തിൽ കൂടുതൽ പദ്ധതികളിൽ മുതൽമുടക്കാൻ ഡി

കൊച്ചിയിൽ ലോജിസ്റ്റിക് ആന്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് നൽകാമെന്ന് മുഖ്യമന്ത്രി കമ്പനിക്ക് ഉറപ്പു നൽകി ഉൾനാടൻ ജലഗതാഗത ചെറുകിട തുറമുഖ വികസനം എന്നിവയിലും ഡി

വേൾഡ് സഹകരിക്കും

ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വംബോർഡ് അധികൃതർ ഇന്ന് മുഖൃമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും

ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഭാഗമായ ആയൂർവേദം വിദേശരാജ്യങ്ങളിലും പ്രശസ്തി നേടുകയാണെന്ന് ആർ എസ്

നാഗ്പൂരിൽ ആയുർവേദ മരുന്നു കമ്പനി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും

കമ്മീഷണർമാരായ സുനിൽ അറോറ അശോക് ലാവാസാ എന്നിവരും ഉൾപ്പെടുന്നതാണ് സംഘം ഇന്ന് ഉച്ചക്കഴിഞ്ഞ് ഹൈദരാബാദിലെത്തുന്ന സംഘം പിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും

ടൂർണമെന്റിൽ തുടർച്ച്യായ മൂന്നാം വിജയത്തോടെ ഇന്ത്യ സെമിഫൈനൽ സാധ്യ വർധിപ്പിച്ചു

നാളെ മലേഷ്യയോട് ഏറ്റുമുട്ടുന്ന ഇന്ത്യ ബുധനാഴ്ച ദക്ഷിണ കൊറിയയെ നേരിടും

നാസിക്കിൽ വിശ്വശാന്തി അഹിംസ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

വോട്ടെടുപ്പിൽ വ്യാപകമായി ക്രമക്കേട് നടന്നെന്നും ഇക്കാര്യം പോലീസോ സൈന്യമോ അന്വേഷിക്കണമെന്നുമാണ് യാമീൻ ആവശ്യപ്പെട്ടത് എന്നാൽ വോട്ടെടുപ്പിൽ അട്ടിമറി നടന്നതായി തെളിയിക്കാൻ പ്രസിഡന്റിന്റെ അഭിഭാഷകർക്ക് കഴിഞ്ഞില്ലെന്ന് കോടതി വൃക്തമാക്കി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഇബ്രാഹിം മുഹമ്മദ് സാലിഹിനോട് വൻ പരാജയമാണ് അബ്ദുള്ള യാമീൻ ഏറ്റുവാങ്ങിയത്

ഭീകരാക്രമണങ്ങളെ വകവെയ്ക്കാതെ സ്ത്രീകൾ അടക്കമുള്ളവർ വോട്ട് ചെയ്യാനെത്തിയത് ജനാധിപതൃഭരണത്തിൽ അവർക്കുള്ള വിശ്വാസമാണ് പ്രകടമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു വെല്ലുവിളികൾ ഏറ്റെടുത്ത് തെരരഞ്ഞെടുപ്പു പൂർത്തിയാക്കാൻ സാഹചര്യമൊരുക്കിയ അഫ്ഗാൻ ദേശീയ ഐകൃ ഗവൺമെന്റിനേയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സൂരക്ഷാ സേനയേയും ഇന്ത്യ അഭിനന്ദനം അറിയിച്ചു

സ്ംഭവത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കുമെന്ന് ഖഷോഗിയുടെ കുടുംബത്തിന് അദ്ദേഹം ഉറപ്പുനൽകി വലിയ ദുരന്തമാണ് ഖഷോഗിയുടെ കൊലപാതകമെന്ന് ഫോക്സ് ന്യൂസിനു നൽകിയ അഭിമുഖത്തിൽ അൽജൂബൈർ പറഞ്ഞു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന് സംഭവത്തെക്കുറിച്ച് ഒരു തരത്തിലും അറിവുണ്ടായിരുന്നില്ലായെന്ന് അദ്ദേഹം പറഞ്ഞു ഖഷോഗിയുടെ മരണത്തിലെ ദൂരൂപ്പു നീക്കണമെന്ന് ബ്രിട്ടൻ ഫ്രാൻസ് ജർമനി എന്നീ രാജൃങ്ങൾ ഇന്നലെ സ്പയുക്തി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു

എൻ പിന്തുണയുള്ള ദക്ഷിണ കൊറിയ ആസ്ഥാനമായ ഗ്രീൻ ക്ലൈമറ്റ് എന്ന സംഘടനയാണ് പദ്ധതികൾ ആവിഷ്ക്കരിച്ചത്

ശനിയാഴ്ച സമയം അവസാനിച്ചിരിക്കെയാണ് അഞ്ചു ദിവസം കൂടി അനുവദിക്കാൻ ധനമന്ത്രാലയം തീരുമാനിച്ചത്